പിൻമാറ്റത്തിന് ഇന്ത്യയും ചെനയും തമ്മിൽ ധാരണ

കഴിഞ്ഞദിവസം മോൾഡോയിൽ നടന്നു കോർ കമാൻഡർ തല ചർച്ചയിലാണ് ഇരുവിഭാഗവും പിൻവാളങ്ങൾ തീരുമാനിച്ചത്

ലഡാക്ക് അതിർത്തിയിലെ സംഘർഷ്ടം ലഘൂകരിക്കാൻ ഇന്തൃ ചൈന സൈനികോദ്യോഗസ്ഥർ ത്മ്മിൽ നിയന്ത്രണരേഖയ്ക്കടുത്തുള്ള ചൈനീസ് മേഖലയായ് മോൾഡോയിൽ ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് യോഗം ചേർന്നത് രണ്ടാം തവണയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമാൻഡർ റാങ്കിലുള്ള ചർച്ച നടത്തുന്നത്

അതേസമയം കരസേനാ മേധാവി ജനറൽ മനോജ് നരവാനെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ജമ്മുകശ്മീരിലെത്തി ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം അതിർത്തിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും

കുടിയേറ്റ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ആയിരംകോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്

ഈ മാസാവസാനത്തോടെ വിവിധ സംസ്ഥാനങ്ങൾക്കായി പതിനാലായിരം വെന്റിലേറ്ററുകൾ കൂടി നൽകും കുടിയേറ്റ തൊഴിലാളികളുടെ താമസം ഭക്ഷണം ചികിത്സ യാത്രെച്ചെലവ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ആയിരം കോടി രൂപയും അനുവദിച്ചു

ഗുജറാത്ത് ഡൽഹി പശ്ചിമബംഗാൾ ഹോബിഹാർ മധ്യപ്രദേശ് എന്നിവിടങ്ങൾക്കും ഈയിനത്തിൽ തുക അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി സന്ദർശിച്ച അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രപ്രതിമയിൽ പുഷ്പചക്രം അർപ്പിച്ചു

യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് വിജയ പരേഡ് സംഘടിപ്പിക്കുന്നത്

ഇതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ ഡൽഹി രണ്ടാമതായി

സി എം ആർ അറിയിച്ചു

പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ന്യുമോണിയ ബാധിതനായിരുന്ന ഇയാൾക്ക് ഇന്നലെ രാത്രി ഹൃദയാഘാതം ഉണ്ടായി

കുപ്പാര ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക്സേന വെടിവെയ്പും മോർട്ടാർ ആക്രമണവും നടത്തി ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

അതേസമയം ഇന്നു രാവിലെ ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു ഒരു സി

കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ്

അന്താരാഷ്ട്രബന്ധത്തിലെ കാലാനുസൃതമായ തത്വങ്ങളിലുള്ള വിശ്വാസമാണ് ത്രികക്ഷി ചർച്ച അടിവരയിടുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു